ഇതോടൊപ്പം ഡാമൻ ഡ്യൂവിലെയും ദാദ്ര നാഗർ ഹവേലിയിലെയും തിരഞ്ഞെടുപ്പും മൂന്നാംഘട്ടത്തിൽ നടക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്ജ് ജില്ലാകളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക നൽകി പത്രികകൾ അടുത്തമാസം നാലുവരെ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ സ്വീകരിക്കും

റിട്ടേണിങ് ഓഫിസറുടെ കാര്യാലയത്തിന് നൂറുമീ റ്റർ പരിധിക്കുള്ളിൽ മൂന്നു വാഹനങ്ങൾക്കു മാത്രം സ്ഥാനാർത്ഥി യെ അനുഗമിക്കാം

ഇതു നിരീക്ഷിക്കാൻ ഡി

പിയുടെ റാങ്കിൽ കുറയാത്ത പോലിസ് ഉദ്യോഗസ്ഥനെ നോഡൽ ജർഫിസറായി നിയമിച്ചിട്ടുണ്ട്

നാമനിർദേശ പത്രികയോള്ടിപ്പം ് ഇത്തവണ സ്ഥാനാർത്ഥിയുടെ സ്റ്റാംപ് സൈസ് ഫോട്ടോട്ട് സമർപ്പിക്കണം

ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ നടക്കും രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു

ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനാൽ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പെരുമാറ്റചട്ട ലംഘനമാണെന്ന് വിമർശനം ഉയർന്നിരുന്നു ഇത് ശ്രദ്ധയിൽപെട്ടതിനെ തുടർന്നാണ് കമ്മീഷൻ വിഷയം പരിശോധിക്കുന്നത്

നാളെയാണ് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ പുതുൽ ബങ്ക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്

ക്രൊയേഷ്യയിലെ സഗ്രേബ് സർവ്വകലാശാല വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നവ ഇന്ത്യ ഒരുങ്ങുകയാണ് ആഗോളതലത്തിൽ മുന്നിലെത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് രാജ്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു കാലാവസ്ഥാ വൃതിയാനം അടക്കമുള്ള വെല്ലുവിളികൾ നേരിടാനും പുതിയ ലോകം നിർമ്മിക്കാനും ഇന്ത്യ മുൻപന്തിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു

കോൻട പോലീസ് സ്റ്റേഷനിൽ സി

എഫ് ഉദ്യോഗസ്ഥരുടെ സാന്നിധൃത്തിലായിരുന്നു രണ്ടു സ്ത്രീകൾ ഉൾപ്പെടെ പത്ത് നക്സലുകൾ കീഴടങ്ങിയത്

ഡി എ കെ എം എസ്റ്റ് പ്രവർത്തകരായിരുന്നു ഇവരെന്നും പൊലീസ് അറിയിച്ചു

ഷോപിയാൻ ജില്ലയിൽ ഇന്ന് രാവിലെയാണ് സംഭവം കെല്ലർ മേഖലയിൽ ഇന്നലെ രാത്രി തീവ്രവാദികൾക്കായി സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടയിലാണ് സംഭവം കുപ്വാര ജില്ലയിലെ ഹന്ദ് വാരയിൽ തീവ്രവാദികൾ ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ട്തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്

ഗവേഷണ വികസന മേഖല കാര്യക്ഷമിത്ാ ്നിർമ്മാണം ആരോഗ്യ സേവനങ്ങൾ ഔഷധ നിർമ്മാണ് പ്രൂവസായം രോഗനിർണയം എന്നീ മേഖലകളിൽ സഹ്ക്രണത്തിന് ഈ ധാരണാപത്രം വഴിതെളിക്കുമെന്ന് വിദ്ദേശികാർ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു

കഴിഞ്ഞ രണ്ടു ദിവസമായി സംസ്ഥാനത്ത് നിരവധി പേർക്കാണ് സൂര്യാഘാതം ഏറ്റത് കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും കുടിവെള്ള ലഭൃത ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നിർദ്ദേശം കുടിവെള്ള ലഭൃത ഉറപ്പാക്കാനും പകർച്ചവൃാധി നൽകി

മലപ്പുറത്ത് സൂര്യാതപം ഏൽക്കുന്നവരുടെ എണ്ണം വർധിച്ചുവരുന്ന സാഹചര്യത്തിൽ റവന്യൂ ആരോഗ്യ വകുപ്പുകൾ നൽകുന്ന നിർദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കലക്ടർ അറിയിച്ചു

ജില്ലയിൽ അഞ്ചുപേർക്ക് ഇന്നലെ പൊള്ളല്ലേറ്റു

തുറന്നിരിക്കുന്ന ഭക്ഷണ പദാർഥങ്ങൾ ഉപയോഗിക്കരുത് ചിക്കൻപോക്സ് ചെങ്കണ്ണ് തുടങ്ങിയ രോഗങ്ങൾ വേനൽക്കാലത്ത് പടരാമെന്നതിനാൽ ശാസ്ത്രീയ ചികിത്സ മാത്രം സ്വീകരിക്കുക ഐഎംഎയുടെ ഗവേഷണ വിഭാഗം നൽകുന്ന തുടർ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കണമെന്നും റെഡ് അലർട്ടിലുണ്ട്

നാളെ റിലീസ് നിശ്ചയിച്ച ചിത്രം അയോധ്യ പ്രശ്നത്തിലെ മധ്യസ്ഥ ശ്രമങ്ങളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചത് എന്നാൽ ചിത്രം പുറത്തിറങ്ങുന്നത് മധൃസ്ഥ ശ്രമങ്ങളെ ബാധിക്കില്ലെന്ന് ജസ്റ്റിസ് ബോഗ്ദെ അധ്യക്ഷനായ ബഞ്ച് വ്യക്തമാക്കി ഹർജിയിൽ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും വാദം കേൾക്കും സനോജ് മിശ്ര സംവിധാനം ചെയ്ത രാംകീ ജന്മഭൂമി എന്ന ചിത്രം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്

വിഷയ്ക്കൂഭർണഘടനാ ബഞ്ചിന് വിടണമെന്ന ആവശ്യവും കോടതി ആന്ന് പരിഗണിക്കും

ദേന വിജയ ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മൂലധന നിക്ഷേപം നടത്താനുള്ള തീരുമാനം

ന്യൂഡ്ട്രൂഹിയിൽ ഒരു ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായ്ടിരുന്നു ് അദ്ദേഹം

രണ്ട് വിക്കറ്റുകൾ നേടിയ കൊൽക്കത്തയുടെ ആൻഡ്രെ റസ്സലാണ് മാൻ ഓഫ് ദ മാച്ച് ഇന്ന് രാത്രി എട്ട് മണിക്ക് ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ നേരിടും